ജനുവരി മൂന്നിന് വിക്ഷേപണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും എന്നാൽ മാർച്ച് വരെ നീണ്ടേക്കാമെന്നും അദ്ദേഹം അറിയിച്ചു ചന്ദ്രോപരിതലത്തിൽ ഉപഗ്രഹം സുഗമമായി ഇറങ്ങുന്ന രീതി യിൽ രൂപകല്പനയിൽ കാതലായ മാറ്റം വരുത്തിയതാണ് വിക്ഷേ പണം വൈകിക്കാൻ കാരണമെന്ന് അദ്ദേഹം ബംഗളുരുവിൽ അറി യിച്ചു